സ്വയം പര്യാപ്ത രാഷ്ട്രമെന്ന വീക്ഷണവുമായി ഇന്ത്യ മുന്നോട്ട് നീങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ നിക്ഷേപങ്ങൾക്ക് യോജിച്ച അവസരമാണിതെന്നും പ്രധാനമന്ത്രി

അസമിൽ വെള്ളപ്പൊക്ക ദുരിതം തുടരുന്നു രക്ഷാദൌതൃങ്ങളുമായി ദേശീയ ദുരന്തനിവാരണസേന സജീവം

ഐബിഎം സിഇഒ അരവിന്ദ് കൃഷ്ണയുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം സാങ്കേതിക വിദ്യയും ഡാറ്റയും സംയോജിപ്പിച്ചുള്ള താങ്ങാവുന്നതും തടസ്സ രഹിതവുമായ ആരോഗ്യ സംവിധാനത്തിന്റെ വികസനത്തിലേക്ക് ഇന്തൃ എത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന രീതി വർദ്ധിച്ചു വരുന്നതായും ഇതിനായുള്ള അട്ടിസ്മാന സൌകര്യം മറ്റ് സംവിധാനങ്ങൾ എന്നിവ സ്യർക്കാർ ഉറപ്പാക്കുന്നതായും പ്രധാനമന്ത്രി വൃക്തമാക്കി ദ്ദ് ശതമാനം തൊഴിലാളികളെ വീട്ടിലിരുത്തി ജോലി ച്ചെയ്യിക്കാൻ തീരുമാനിച്ചു ഐബിഎം നടപടിയിലെ വെല്ലുവിളീക്ൿ ഇരുവരും ചർച്ച ചെയ്തു ഇത് ഇന്ത്യയിൽ നിക്ഷേപങ്ങൾ നടത്താൻ യോജിച്ച അവസരമാണെന്നും വീട്ടിലിരുന്ന് തടസ്സരഹിതമായി ജോലികൾ ചെയ്യാൻ സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു

മോദി പ്രശംസിച്ചു

കോവാക്സിന്റെ മനുഷ്യരിലെ രണ്ടാം ഘട്ട പരീക്ഷണങ്ങൾ മൂന്നുമാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശീയ കോവിഡ് പ്രതിരോധ മരുന്ന് വികസിപ്പിക്കാനായത് വലിയ നേട്ടമാണെന്നും മനുഷ്യരിലുള്ള പ്രാഥമിക ഘട്ട പരീക്ഷണത്തിന് സന്നദ്ധത അറിയിച്ച് നിരവധി പേരാണ് മുന്നോട്ട് വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി

റോയ് അറിയിച്ചു

അതേസമയം കോവിഡ് സ്ഥിതിഗതികൾ പഠിക്കാൻ ഐസിഎംആർ സംസ്ഥാനത്ത് വ്യാപക പരിശോധന സംഘടിപ്പിച്ചിട്ടുണ്ട്

ഉദയകുമാർ ഇന്നലെ ചെന്നൈയിൽ അറിയിച്ചു

ഉദ്യോഗാർത്ഥികൾ വിദഗ്ധർ കമ്മീഷൻ ഉദ്യോഗസ്ഥർ എന്നിവരുടെ ആരോഗൃ സുരക്ഷയെ മുൻനിർത്തി അനുയോജ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉദ്യോഗാർഥികളുടെ താമസം ഗതാഗത സൌകരൃം എന്നിവയ്ക്ക് യുപിഎസ്സിയുടെ സഹായം ലഭിക്കും

മീന്നവ്പിഭവ ശേഷി വികസന സഹമന്ത്രി ഉന്നത വിദ്യൂട്ട്യാസ വിഭാഗം സെക്രട്ടറിമാർ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ തുടങ്ങിയവർ പങ്കെടുക്കും

രാജ്യത്ത് ഇ മൊബിലിറ്റി സംവിധാനം വ്യാപിപ്പിക്കുന്നതിന് ഇത് സഹായകരമാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

അഞ്ച് വൃത്യസ്ത ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ്ജ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കും

ഉപഭോക്താക്കൾക്ക് അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാൻ നിയമം സഹായകരമാകുമെന്ന് കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി പറ്റി മാധ്യമപ്രവർത്തകരുമായി വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള കേന്ദ്ര ഉപഭോക്തൃസംരക്ഷണ അതോറിറ്റി രൂപീകരിക്കാൻ നിയമം സഹായകമാകുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി

സംസ്ഥാന ദേശീയ ദുരന്തു നിവിധരണ സേനാംഗങ്ങൾ ദുരിതാശ്വാസ രക്ഷാപ്രവർത്ത്ന്ങൾ തുടരുകയാണ് മുഖ്യമന്ത്രി സർബാനന്ദ ്ര്സോനോവാൾ പ്രളയബാധിത പ്രദേശങ്ങളായ ബാർപ്പേട്ടു നൽബാരി ജില്ലകൾ സന്ദർശിച്ചു വെള്ളപ്പൊക്കത്തെ ത്രെതിടാൻ സംസ്ഥാന സർക്കാരിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് സോനോവാൾ പറഞ്ഞു

നാളെ വരെ ശക്തമായ മഴ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വിജയ് ചൌക് മോട്ടി ബാക ദ്വാരക ഇന്ത്യാഗേറ്റ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു

ഞായറാഴ്ച പെയ്ത മഴയിൽ തലസ്ഥാന മേഖലയിലെ റോഡുകളിലും നിരത്തുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്